ഇന്നലെ രാത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവേയാണ് പ്രധാനമന്ത്രി സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്

രാജ്യത്തെ എല്ലാ വിഭാഗം ജ്നങ്ങൾക്കും ഈ സാമ്പത്തിക പാക്കേജിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

പാക്കേജിന്റെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വൃക്തമാക്കും ഈ നൂറ്റാണ്ട് ഇന്ത്യയുടേതാണ് എന്നാണ് കരുതപ്പെടുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കൊറോണയ്ക്ക് മുമ്പ് കൊറോണയ്ക്ക് ശേഷം എന്ന് രണ്ടായി തരംതിരിച്ച് നടപടികളെടുക്കണം ഈ വെല്ലുവിളികളെ നേരിടാനും ഈ സ്ഥിതിയെ അവസരമായി കാണാനും കഴിയണം നിലവിലെ സാഹചര്യത്തെ നേരിടാൻ ഇന്ത്യ സ്ഥയം പര്യാപ്തമാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സമ്പദ് വൃവസ്ഥ അടിസ്ഥാന സൌകര്യം സാങ്കേതിക വിദ്യ ഉല്പ്പാദന വിതരണ ശൃംഖല സാമൂഹിക വൈവിധ്യം എന്നീ അഞ്ച് തൂണുകളാണ് ഇന്ത്യയുടെ ശക്തിയെന്ന് ശ്രീ മോദി പറഞ്ഞു തദ്ദേശീയമായ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രാജൃം നാല് മാസമായി കോവിഡുമായി യുദ്ധം ചെയ്യുകയാണ് ഈ പ്രതികൂല സാഹചര്യത്തെ നാം അതിജീവിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

യാത്രക്കാരിൽ ഭൂരിഭാഗവും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലുള്ളവരായിരുന്നു തമിഴ്നാട് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും വിമാനത്തിലുണ്ടായിരുന്നു

ദുബായിൽ നിന്നും ഡൽഹിയിലേക്കും അമൃത്സർലേക്കുമുള്ള വിമാനങ്ങൾ ഇതിൽ ഉൾപ്പെടും

കുവൈറ്റിൽ നിന്ന് അഹമ്മദാബാദിലേക്കും കോഴിക്കോട്ടേക്കുമാണ് രണ്ട് വിമാനങ്ങൾ എത്തുന്നത്

ന്യൂഡൽഹി ബംഗ്ളൂരു മുംബൈ ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള ഇന്ത്യാക്കാരെ എയർ ഇന്ത്യയുടെ വിമാനത്തിലാകും നാട്ടിലെത്തിക്കുക ഇതിനായുള്ള ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിലാണെന്ന് മാലിദ്വീപിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സുഞ്ജയ് സുധീർ ആകാശവാണിയോട് പറഞ്ഞു

വിവിധ സംസ്ഥാനങ്ങളിലുളളവരാണ് സുരക്ഷിതരായി നാട്ടിലെത്തിയത് പ്രത്യേക ട്രെയിനുകളിൽ പുറപ്പെടുന്നതിനു മുമ്പ് യാത്രക്കാരെ രോഗപരിശോധനക്ക് വിധേയരാക്കുകയും യാത്രക്കാർക്ക് സൌജനൃമായിഭക്ഷണവും വെള്ളവും നൽകുകയും ചെയ്യുന്നുണ്ട്

വന്ദേ ഭാരത് മിഷൻ പ്രകാരം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ഇന്നലെ രാത്രിയാണ് ഇവർ എത്തിയത്

പരിശോധനയിൽ രോഗ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച രണ്ടുപേരെ അഞ്ചരക്കണ്ടി കോവിഡ് ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റി

കൂടുതൽ വിവരങ്ങളുമായ ആകാശവാണി കൊച്ചി ലേഖകൻ എൻ സി ജയചന്ദ്രൻ

പത്തനംതിട്ട കോട്ടയം എന്നിവിടങ്ങളിൽ ് ഓരോരുത്തർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്

എൽ

എൽ

പോളിടെക്നിക്കിനു ശേഷം ലാറ്ററൽ എൻട്രി വഴി എഞ്ചിനീയറിങ് പ്രവേശനത്തിന് പ്രത്യേക പ്രവേശന പരീക്ഷ ഉണ്ടാകില്ല പകരം മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻസ് മുഖേനയാണ് ഈ വർഷത്തെ അഡ്മിഷൻ നടത്തുകയെന്നും അദ്ദേഹം പറഞ്ഞു കീം പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ളവരും ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ളവരുമായ വിദ്യാർത്ഥികൾക്കും കേരളത്തിന് പുറത്തുള്ള കേന്ദ്രങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും പരീക്ഷാ കേന്ദ്രങ്ങൾ മാറ്റാൻ ഒരു അവസരം കൂടി ജൂൺ മാസത്തിൽ നൽകും സംസ്ഥാനത്തെ പോളിടെക്നിക്ക് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ വീടിനടുത്തുള്ള പോളിടെക്നിക്കുകളിൽ പരീക്ഷ എഴുതാനുള്ള ക്രമീകരണം സജ്ജീകരിക്കും പോളിടെക്നിക്ക് കോളേജുകളിലെ അവസാന സെമസ്റ്റർ പരീക്ഷകൾ ജൂൺ ആദ്യവാരം ആരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ജൂൺ ഒന്നിനു തന്നെ സ്കൂളുകളിൽ ഓൺലൈൻ ക്ലാസ് ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

ആർ സി ടി സി വെബ്സൈറ്റ് വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു

സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം മാത്രമേ യാത്രക്കാരെ ട്രെയിനിൽ കയറാൻ അനുവദിക്കുകയുള്ളൂ യാത്രക്കാർ നിർബന്ധമായും മാസ്കുകൾ ധരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും വേണം യാത്ര ഉറപ്പാക്കുന്ന ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ സ്റ്റേഷനുകളിൽ പ്രവേശനം അനുവദിക്കുകയുള്ളൂ